ഏഴാമത്തേയും അവസാനത്തേയും ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം രാജ്യത്ത് ഊർജ്ജിതം

ലോകത്തിന് മുഴുവ്യൻ വെല്ലുവിളി ഉയർത്തുന്ന പൊതുപ്രശ്നങ്ങള്ള് നേരിടാൻ നൂതന പരിഹാരങ്ങളുമായി ഗവേഷകർ മുന്നോട്ട് വരണമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു

പ്രകൃതിദുരന്തങ്ങളുടെ ആഘാതം താങ്ങാൻ ശേഷിയുള്ള നവകേരളം നിർമ്മിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

പൂരപ്രേമികളുടെ മനം കവർന്ന് കുടമാറ്റം

കൂടുതൽ വിവരങ്ങളുമായി തുളസിദാസ് വോയിസ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നു ഹിമാചൽപ്രദേശിലെ സ്പോളനിൽ റാലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകാല കോൺഗ്രസ് ഗവൺമെന്റുകൾക്കെതിരെ ശക്തമായ ആരോപണം ഉന്നയിച്ചു

കോൺഗ്രസ് ഗവൺമെന്റുകളെ തെറ്റായ നയപരിപാടികൾ തിരുത്തിയ ബി ജെ പി ഗവൺമെന്റ് അഞ്ച് വർഷത്തെ ഭരണം കൊ ് പ്രതിരോധ നിർമ്മാണ മേഖലയിൽ വൻ പുരോഗതി നേടിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു പ്രതിഛായ കളങ്കപ്പെടുത്താനാണ് പ്രതിപക്ഷം തന്റെ ശ്രമിക്കുന്നതെന്നും എന്നാൽ രാജ്യത്തിന്റെ പ്രതിഛായ ശക്തമാക്കാനാണ് താൻ പരിശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

പഞ്ചാബിലെ ലുധിയാനയിലെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി പങ്കെടുത്തു അഞ്ച് വർഷത്തെ ഭരണത്തിൽ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ എൻ ഡി എ ഗവൺമെന്റിന് ആയില്ലെന്ന് രാഹുൽഗാന്ധി പറഞ്ഞു ഉത്തർപ്രദേശിലെ ഖൊരക്പൂരിൽ ബി എസ് പി നേതാവ് മായാവതി പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു

രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു വരെ ഏതു സമയവും സമ്മതിദായകന് വോട്ടവകാശം രേഖപ്പെടുത്താൻ കഴിയുമെന്നും സമയം നേരത്തെ ആക്കുന്നത് ഇലക്ഷൻകമ്മിഷന് പ്രായോഗിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും ജസ്റ്റിസുമാരായ ഇന്ദിരാ ബാനർജിയും സഞ്ജീവ് ഖന്നയും ചൂ ിക്കാട്ടി

ചന്ദ കൊച്ചാറിന് പുറമേ ഭർത്താവ് ദീപക് വീഡിയോകോൺ ഗ്രൂപ്പ് മേധാവി വേണുഗോപാൽ ധൂത് തുടങ്ങിയവരും കേസിൽ പ്രതിയാണ്

സുസ്ഥിര വികസന ലക്ഷൃങ്ങൾ നേടാനും പൊതുജന ആരോഗ്യ സംരക്ഷണത്തിനും ദാരിദ്ര്യ് നിർമാർജ്ജനത്തിനും കാർഷിക പ്രശ്നങ്ങളെ നേരിടാനും പുതുമയുള്ളതും പ്രായോഗികവുമായ നടപടികൾ ആവശ്യമാണെന്നും അദ്ദേഹം ചൂ ിക്കാട്ടി

രാഷ്ട്രപതി ഭവനിൽ ഫക്രുദീൻ അലി അഹമ്മദിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ രാഷ്ട്രപതിയും രാഷ്ട്രപതി ഭവൻ ജീവനക്കാരും പുഷ്പാഞ്ജലി അർപ്പിച്ചു

അവന്തിപ്പോറയിൽ നിന്നുള്ള ഷൌക്കത്ത് അഹമ്മദും കുൽഗാമിൽ നിന്നുള്ള തൌഫീക് അഹമ്മദുമാണ് പിടിയിലായത് ഇവരിൽ നിന്നും ഒന്നരകോടി രൂപയും ആയുധങ്ങളും വെടിക്കോപ്പുകളും പോലീസ് പിടിച്ചെടുത്തു

ചിലയിടങ്ങളിൽ ഭീകരാക്രമണത്തിന് ഇവർ പദ്ധതി ഇട്ടിരുന്നതായി പ്രാഥമിക ചോദ്യം ചെയ്യലിൽ വെളിപ്പെട്ടു

ജനീവയിൽ ഐകൃരാഷ്ട്ര സംഘടന സംഘടിപ്പിച്ച അന്താരാഷ്ട്ര പുനർനിർമാണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

എന്നാൽ കേരളീയ സമൂഹം ഈ പ്രകൃതിദുരന്തത്തെ അസാമാന്യമായ നിശ്ചയദാർഢ്യത്തോടെയാണ് നേരിട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു

കേരള സമൂഹം മതനിരപേക്ഷ മൂലൃങ്ങളിലധിഷ്ഠിതമായതിനാൽ പ്രകൃതി ദുരന്തമുയർത്തിയ വെല്ലുവിളി നേരിടുന്നതിൽ ഏകമനസ്സോടെ പ്രവർത്തിക്കുവാൻ സാധിച്ചു മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ സമയോചിതമായ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ ഇതിലുമധികം ജീവനുകൾ പ്രളയത്തിൽ നഷ് ടപ്പെടുമായിരുന്നു ഗവൺമെന്റ് സംവിധാനും ജാഗരൂകമായി മുഴവൻ സമയവും പ്രതിസ്ന്ധി ഇൌ നേരിടാനായി പ്രവർത്തനനിരതമായിരുന്നുവെന്നുട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനീവയിൽ പറഞ്ഞു

വർണ്ണകുടകൾ മത്സരിച്ച് ഉയർത്തിയ കുടമാറ്റം കാണികൾക്ക് വിസ്മയമായി മുഖാമുഖം നിൽക്കുന്ന പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ തമ്മിൽ പ്രൌഡഗംഭീരമായ വർണ്ണകുടകൾ പരസ്പ രം ഉയർത്തി കാണിച്ച് മത്സരിക്കുന്നതാണ് പൂരത്തിലെ പ്രധാന ഇനമായ കുടമാറ്റം കഥകളി രൂപങ്ങൾ മുതൽ മിക്കിമൌസിന്റെ ചിത്രങ്ങൾ വരെയുള്ള കൂടകളും പല നിലകളുള്ള കുടകളും കുടമാറ്റത്തിന്റെ ഭംഗി കൂട്ടി ഇന്ത്യൻ സൈനികർക്ക് ആദരവ് അർപ്പിച്ചുകൊ ് ജവാന്മാരുടെ ചിത്രവും ഇത്തവണ കുടമാറ്റത്തിൽ ഉൾപ്പെടുത്തിയത് കാണികൾക്ക് ആവേശമായി പൂരത്തിന്റെ ഭാഗമായ ചടങ്ങുകൾ നാളെ ഉച്ചവരെ നീളും

നാളെ രാവിലെ തിരുവമ്പാടിയും പാറമേക്കാവും ദേവതകൾ ശ്രീമൂലസ്ഥാനത്ത് എത്തി വടക്കുന്നാഥനെ വണങ്ങി അടുത്ത പൂര തീയതി പ്രഖ്യാപിച്ച് ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ ഈ വർഷത്തെ തൃശൂർ പരിസമാപ്തിയാകും പൂര കർശന സുരക്ഷാക്രമീകരണങ്ങളാണ് ഇത്തവണ പൂരനഗരിയിൽ ഒരുക്കിയിരിക്കുന്നത്

കോഴിക്കോട് മലപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന മൾട്ടി ആക്സിൽ ട്രക്കുകൾ ഇന്ന് മുതൽ ര ാഴ്ചത്തേക്ക് നാടുകാണി കൂറ്റ്യാടി വഴി യാത്ര ചെയ്യേ താണെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ അറിയിച്ചു

ലോകവ്യാപാര മേഖല ബഹുതല സ്പർശിയായ പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യത്തിലാണ് ഡൽഹിയിൽ ര ് ദിവസത്തെ യോഗം ചേരുന്നത്

അഞ്ച് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടു ് ഇന്നലെ രാത്രി സെറി പൌൾ പ്രവിശ്യയിലെ ചെക്ക് പോസ്റ്റിന് നേരെയാണ് ആക്രമണം ഉ ായത് മണിക്കൂറുകളോളം നീ ഏറ്റുമുട്ടലിൽ നാല് താലിബാൻ ഭീകരരെ വധിക്കാനായെന്നും പ്രവിശ്യ ഗവർണ്ണർ അറിയിച്ചു

സമ്പദ് ഘടനയെ സുസ്ഥിരമാക്കാൻ നയങ്ങളും പരിഷ്കാരങ്ങളും ആവശ്യമാണെന്നും ഐ എം എഫ് അറിയിച്ചു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പാകിസ്ഥാന് ആറ് ബില്യൺ ഡോളർ നൽകാൻ കഴിഞ്ഞ ദിവസം ഐ എം എഫ് ധാരണയിൽ എത്തിയിരുന്നു